രാവിലെ ഒൻപതിന് ചേരുന്ന സഭ ചരമോപചാരം അർപ്പിച്ച ശേഷം ധനകാര്യബിൽ പരിഗണനയ്ക്കെടുക്കും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ യു ഡി എഫ് നോട്ടീസ് നൽകിയ അവിശ്വാസ പ്രമേയവും സഭ പരിഗണിയ്ക്കും സ്വർണക്കടത്തുകേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നും പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസിലെ വി ഡി സതീശൻ നോട്ടീസ് നൽകിയത് നിയമസഭയിലെ കക്ഷിനിലയനുസരിച്ച് പ്രമേയം പാസാകാനിടയില്ലെങ്കിലും പിണറായി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിയ്ക്കാൻ പ്രതിപക്ഷം ചർച്ച പ്രയോജനപ്പെടുത്തും സ്വർണക്കടത്തുകേസും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് ലഭിക്കാൻ ഗവൺമെന്റ് ഒത്തുകളിച്ചെന്ന ആരോപണവും പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ ആയുധമാക്കും

ചർച്ച സഭ പ്രക്ഷുബ്ധമാക്കിയേക്കും വോട്ടിംഗ് ആവശ്യമായി വന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് വോട്ടിന് പകരം അംഗങ്ങളുടെ പേര് വിളിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ് സ്വീകരിക്കുക നിയമസഭാ ഹോസ്റ്റലിലും നിയമസഭാ മന്ദിരത്തിലും അംഗങ്ങൾക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തും

ദദ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ തങ്ങളുടെ എം എൽ എ മാർ പങ്കെടുക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം പാർട്ടി സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്നും അറിയിച്ചു അവിശ്വാസപ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും രാജ്യസഭാ വോട്ടിംഗിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ജോസ് വ്യക്തമാക്കി

ജെ ജോസഫ് വിഭാഗം നൽകിയ വിപ്പ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അതേസമയം ജോസ് വിഭാഗത്തിലെ രണ്ട് എം എൽഎ മാർ മോൻസ് ജോസഫ് നൽകുന്ന പാർട്ടി വിപ്പ് ലംഘിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് അറിയിച്ചു ജോസ് കെ മാണിയുടെ നിലപാട് നിയമാനുസൃതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിലെ അഞ്ച് എൽ എ മാരും വിപ്പ് പാലിക്കണമെന്നും ഇല്ലെങ്കിൽ ഫിം നിയമനടപടിയുണ്ടാകുമെന്നും ജോസഫ് അറിയിച്ചു ദേദ എം പി വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്തുനിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവു വന്ന സീറ്റിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും

കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡണ്ട് ലാൽ വർഗീസ് കൽപക വാടിയാണ് അദ്ദേഹത്തിന്റെ യുഡി എഫ് എതിരാളി

സമ്പർക്കം വഴി സംസ്ഥാനത്ത് കോവിഡ് ബാധ വ്യാപിക്കുന്നത് വർദ്ധിക്കുകയാണ്

അഞ്ച് മരണം കൂടി സ്ഥിരീകരിച്ചു

ഇതിൽ മൂന്ന് പേർ തൃശൂരും ഒരാൾ എറണാകുളത്തുമാണ്

അതിനിടെ ഹാർബറുകളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതി നിയന്ത്രിക്കുന്നതിന് ഇൻസിഡന്റ് കമാണ്ടർമാരായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരെ കൊല്ലം ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തി ഹാർബറുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉഗ്യോഗസ്ഥരുമായി ചേർന്ന് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക അധികാരവും ഇൻസിഡന്റ് കമാണ്ടർമാർക്കുണ്ട് ദരദ കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റ് നിയന്ത്രണങ്ങളോടെ ഇന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കും മാർക്കറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി എ സി മൊയ്തീൻ ഗവ ചീഫ് വിപ്പ് കെ രാജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വ്യാപാരി തൊഴിലാളി പ്രതിനിധികളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് നിർദേശങ്ങൾ സ്വരൂപിച്ചിരുന്നു ഇതിന്റെ തുടർനടപടിയായാണ് പച്ചക്കറി മാർക്കറ്റ് തുറക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ കലക്റ്റർ എസ് ഷാനവാസ് അറിയിച്ചു ദേദ മലപ്പുറം ജില്ലയിൽ ഓണാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ കച്ചവട സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡുകൾ ഇന്നു മുതൽ പരിശോധന നടത്തും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ നേതൃത്വത്തിൽ പൊലീസ് ഉദ്യോഗസ്ഥരും മറ്റ് വകുപ്പുദ്യോഗസ്ഥരുമടങ്ങുന്ന സ്ക്വാഡ് രൂപീകരിച്ചത്

നിയമലംഘനം കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾക്കും ആളുകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കും ദുദ ഓണാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ കണ്ടെയിൻമെന്റ് സോണുകളിലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവ നിബന്ധനകൾക്കു വിധേയമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി

പാർട്ടി അധ്യക്ഷ സ്ഥാനമൊഴിയാൻ സോണിയാഗാന്ധി താത്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് നേതാക്കൾ ഒന്നിച്ച് പുതിയ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ അറിയിച്ചു

ദേദ പഴയകാല ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ആന്റണി ഭാസ്കർ രാജ് എന്ന എ

ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു കണ്ണൂർ ഡീലക്സ് ഡെയ്ഞ്ചർ ബിസ്ക്കറ്റ് എഴുതാത്ത കഥ ലോട്ടറി ടിക്കറ്റ് മറുനാട്ടിൽ ഒരു മലയാളി സംഭവാമി യുഗേ യുഗേ അടിമച്ചങ്ങല ഹലോ ഡാർലിംഗ് താളം തെറ്റിയ താരാട്ട് തുടങ്ങിയവ എ ബി രാജ് സംവിധാനം ചെയ്ത മലയാളം ചിത്രങ്ങളാണ്

ഒരു കരിപ്പൂർവിമാനപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു

ഉപ്പുതറ മുത്തംപടിയിൽ മീൻ പിടിക്കാനിറങ്ങിയ കണ്ണംപടി കൊല്ലത്തിക്കാവ് കാവനാൽ അഭിലാഷ് ആണ് മുങ്ങി മരിച്ചത്

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കയച്ച നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാതകൾ തുറക്കാൻ വഴിയൊരുങ്ങുന്നത്

രാജ്യത്തെ അൺലോക്ക് പ്രക്രിയയുടെ ഭാഗമായി അന്തർസംസ്ഥാന പാതകളും ചരക്കുഗതാഗതവും തടസപ്പെടുത്തരുതെന്ന് കേന്ദ്രം നിർദേശം നൽകിയിരുന്നു ദേദ ഇടുക്കി രാജമല പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായി നാളെ വീണ്ടും തെരച്ചിൽ തുടരും ഗ്രാവൽബാങ്ക് ഭൂതക്കുഴി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇനി കണ്ടെത്തേണ്ട അഞ്ച് പേർക്കായി തെരച്ചിൽ തുടരുക വനമേഖലകളും പുഴയും കേന്ദ്രീകരിച്ച് എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും അഡ് വഞ്ചർ ടീമിന്റെയും നേതൃത്വത്തിൽ പൊലീസിന്റെയും വനംവകുപ്പിന്റെയും സഹായത്തോടെയാണ് തെരച്ചിൽ

ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം കൃഷി നാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചത്